ത അഞ്ച് ജില്ലകളിൽ കോവിഡ് സാമൂഹ്യ വ്യാപന സാധ്യത പരിശോധിക്കാൻ റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റ് ഇന്നുമുതൽ

ത എയിംസ് പ്രവേശന പരീക്ഷയെഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അവർ പരീക്ഷ ആവശ്യപ്പെട്ട കേന്ദ്രങ്ങളിൽ എഴുതാൻ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ത സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം

കോവിഡ് ഹോട്ടലുകളും പ്രതിരോധ നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും ഇവയുടെ പ്രവർത്തനം ആരാധനാലയങ്ങളിൽ പ്രസാദമോ നിവേദ്യമോ വിതരണം ചെയ്യില്ല അന്നദാനവും ഉണ്ടായിരിക്കില്ല കേരളമൊഴികെ സംസ്ഥാനങ്ങളിൽ ആരാധനാലയങ്ങളും ഹോട്ടലുകളും മാളുകളും ഇന്നലെ തുറന്നിരുന്നു

ആരാധനാലയങ്ങളും ഹോട്ടലുകളും ഉൾപ്പെടെ ജനത്തിരക്ക് ഉണ്ടായേക്കാവുന്ന ഇടങ്ങൾ അണുവിമുക്തമാക്കി

എസ് എസ്സിന്റെയും സാമൂതിരി ട്രസ്റ്റിന്റെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും കീഴിലെ അമ്പലങ്ങളിൽ ഭക്തജനങ്ങളെ തൽക്കാലം പ്രവേശിപ്പിക്കേണ്ടതില്ലെന്നാണ് തീരുമാനം എന്നാൽ ദേവസ്വംബോർഡുകൾക്ക് കീഴിലെ ക്ഷേത്രങ്ങളും എസ്

പി നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങളും തുറക്കും

ഒട്ടേറെ മുസ്ലിം പള്ളികളും ഇന്ന് തുറക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട് പ്രാദേശിക സാഹചര്യം പരിഗണിച്ചും കോവിഡ് സാധ്യത വിലയിരുത്തിയും മാത്രം പള്ളികൾ തുറന്നാൽ മതിയെന്ന് വിവിധ സംഘടനകൾ തീരുമാനിച്ചു ക്രൈസ്തവ ദേവാലയങ്ങളും ഓരോ സ്ഥലത്തെയും പ്രത്യേകതകൾ കണക്കിലെടുത്ത് തുറന്നാൽ മതിയെന്ന് വിവിധ സഭകൾ തീരുമാനിച്ചിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ റെസ്റ്റോറന്റുകൾ തുറക്കില്ല എന്നാൽ പാഴ്സൽ സേവനങ്ങൾ തുടരുമെന്ന് ഉടമകൾ അറിയിച്ചു വയനാട് കാസർകോട് ജില്ലകളിൽ ഏതാനും റസ്റ്ററന്റുകൾ തുറന്നേക്കും എന്നാൽ താമസ സൌകര്യം നൽകുന്ന ഹോട്ടലുകൾ എല്ലാ ജില്ലയിലും തുറക്കും ദേദ അഞ്ച് ജില്ലകളിൽ കോവിഡിന്റെ സാമൂഹ്യ വ്യാപന സാധ്യത പരിശോധിക്കുന്ന റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റുകൾ ഇന്ന് ആരംഭിക്കും കോഴിക്കോട് കാസർകോട് പാലക്കാട് ആലപ്പുഴ ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് പരിശോധന തുടങ്ങുന്നത്

ആരോഗ്യ പ്രവർത്തകരുടെ സാമ്പിളുകളാണ് ആദ്യ ദിവസം ശേഖരിച്ചത്

സുരേഷ്ബാബു

ഏഴുപേർ കോവിഡ് നെഗറ്റീവായി കാസർകോട് പ്രതിനിധി പി ജഗന്നിവാസൻ

മറ്റന്നാളാണ് പരീക്ഷ തിരുവനന്തപുരത്ത് സെന്റർ ആവശ്യപ്പെട്ട വിദ്യാർത്ഥികളിൽ നല്ലൊരു പങ്കിനും തമിഴ്നാട്ടിലാണ് സെന്റർ കിട്ടിയത് ഇന്നത്തെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ പരീക്ഷയെഴുതാൻ മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകാൻ നിർബന്ധിക്കാനാവില്ലെന്ന് ഡോ ഹർഷ വർദ്ധന് അയച്ച ഇ മെയിൽ സന്ദേശത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു ദേഴ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിൽ ആറ് പഞ്ചായത്തുകളിൽ കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു അവണൂർ അടാട്ട് ചേർപ്പ് പൊറത്തുശ്ശേരി വടക്കേക്കാട് തൃക്കൂർ പഞ്ചായത്തുകളെയാണ് കണ്ടെയ്മെന്റ് സോണുകളായി തിരിച്ച് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് രുമ കോഴിക്കോട് ജില്ലയിലെ ഏഴ് തദ്ദേശ സ്ഥാപനങ്ങളെ കണ്ടെയ്മെന്റ് സോണുകളിൽനിന്ന് ഒഴിവാക്കി അതേസമയം നാല് ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ തുടരും രുമ കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിയും പൂർണ്ണമായി കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളാക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ഇവിടങ്ങളിലെ മറ്റ് രോഗികളെ താലൂക്ക് ആശുപത്രികളിലേക്ക് മാറ്റും

രുര രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണവും രോഗം ഭേദമായവരുടെ എണ്ണവും ഏറെക്കുറെ ഒപ്പത്തിനൊപ്പമായി

എസ് ശ്രീധരൻപിള്ള കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആധ്യാത്മിക ആചാര്യനും തന്ത്രശാസ്ത്ര പണ്ഡിതനുമായിരുന്ന മാധവ്ജിയുടെ അനുസ്മരണത്തിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത് ക്ഷേത്ര ഭദ്രതാ പദ്ധതി ഉപദേശക സമിതി രക്ഷാധികാരിയും കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതിയുമായ സ്വാമി ചിദാനന്ദപുരി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും

ട്രോളിംഗ് നിരോധന കാലയളവിലെ സമാശ്വാസ സഹായധന വിഹിതം സമയബന്ധിതമായി നൽകാൻ നടപടി തുടങ്ങിയതായും മന്ത്രി അറിയിച്ചു രുമ വന്ദേഭാരത് മൂന്നാംഘട്ടത്തിന്റെ ഭാഗമായി പ്രവാസികളുമായി കൂടുതൽ വിമാനങ്ങൾ ഇന്നുമുതൽ നെടുമ്പാശ്ശേരിയിലെത്തും

ദോഹ ദമാം റിയാദ് മസ്ക്കറ്റ് ദുബായ് എന്നിവിടങ്ങളിൽനിന്ന് ഏഴ് വിമാനങ്ങൾ എത്തും ഇന്ന് ദോഹയിൽ നിന്ന് രാത്രി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കണ്ണൂരിലെത്തും ദേഴ ഗവൺമെന്റ് വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഇന്റഗ്രേറ്റഡ് കമാൻഡ് കൺട്രോൾ കമ്യൂണിക്കേഷൻ സെന്റർ കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു പൊതു സേവനം കാര്യക്ഷമമാക്കാനും പ്രകൃതിക്ഷോഭ സാഹചര്യങ്ങളിൽ അടിയന്തര സഹായം എത്തിക്കാനും ലക്ഷ്യമിട്ടാണ് സെന്റർ പ്രവർത്തിക്കുന്നത്